പാകിസ്ഥാൻ ഭീകരവാദം പ്രധാന ചർച്ചാ വിഷയം

വായു ചുഴലിക്കൊടുങ്കാറ്റ് ഒമാൻ തീരത്തേക്ക് വഴിമാറി

ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ന്യൂസിലന്റ് മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു ൾ ൽ ൾ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാൻ തല സ്ഥാനമായ ബിഷ്കെക്കിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായും ഉഭയകക്ഷി ചർച്ച നടത്തി പാകിസ്ഥാൻ പിന്തുണക്കുന്ന ഭീകരതയെ പറ്റി ചൈനീസ് പ്രസിഡന്റിനെ നരേന്ദ്ര മോദി ധരിപ്പിച്ചു ഭീകരതയില്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കാൻ പാകി സ്ഥാൻ തയാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഉച്ചകോടി ഇന്ന് സമാപിക്കും ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ച്ച ഫലവത്തായിരുന്നു വെന്നും ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ചർച്ച വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ച്ചയിലും സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ്ഗാനി ഉൾപ്പെടെ നേതാക്കളുമായി ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി ചർച്ച നട്ടത്തുമെന്ന് ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്തു നിതി ആയോഗിന്റെ അഞ്ചാമത് ഭരണസമിതി യോഗം പ്രധാന മന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നാളെ രാഷ്ട്രപതി ഭവ നിൽ ചേരും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ നിർമ്മലാ സീതാരാമൻ രാജ്നാഥ് സിങ്ങ് തുടങ്ങിയവർ സമിതിയിലെ ഔദ്യോഗിക അംഗങ്ങ ളാണ് മഴവെള്ള സംഭരണം രാജ്യത്തെ വരൾച്ചാ സാഹചര്യം കാർഷിക വികസനം സുരക്ഷാ സാഹചര്യം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും കേരളവും പശ്ചിമബംഗാളും ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ കൂടി ഭരണത്തിലെത്തിയാൽ മാത്രമേ ബിജെപി അതിന്റെ യഥാർത്ഥ ഉയര ത്തിൽ എത്തു എന്ന് പാർട്ടി അധ്യക്ഷൻ അമിത് ഷാ അഭിപ്രായപ്പെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ച്ചവെച്ചെ ങ്കിലും പുതിയ മേഖലകളിലേക്കും കൂടുതൾ ജനപങ്കാളിത്തത്തി ലേക്കും പാർട്ടി ഇനിയും എത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം ന്യൂഡൽഹി യിൽ പറഞ്ഞു ബിജെപി ദേശീയ ഭാരവാഹികളുടെയും സംസ്ഥാന നേതാക്കളുടേയും യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം

വായു ചുഴലികൊടുങ്കാറ്റ് ഗുജറാത്ത് തീരം തൊടാതെ ഒമാൻ തീരത്തേക്ക് വഴിമാറി

അഞ്ഞൂറിലേറെ ഗ്രാമങ്ങളിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു തീരപ്രദേശത്ത് ശക്ത മായ കാറ്റും മഴയും തുടരുകയാണ്

രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗുജറാത്ത് തീരത്ത് നിന്ന് മൂന്ന്ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചിരുന്നു നിർത്തിവെച്ചിരുന്ന വിമാ നസർവീസുകൾ ഇന്ന് പുനരാരംഭിക്കും

പൊഴിയൂർ മുതൽ കാസർകോട് വരെ മൂന്ന് മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ തിരമാലക ളുണ്ടാകാനും സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ നാലര മീറ്ററിലേറെ ഉയ രത്തിലും തിരമാലകൾ ഉണ്ടാകാം മീൻപിടിത്തക്കാർ രണ്ട് ദിവസം കൂടി ജാഗ്രത പാലിക്കണമെന്നാണ് നിർദേശം

പൊന്നാനി അഴീക്കൽ മുതൽ പുതുപൊന്നാനി വരെ നഗരസഭാ പരിധിയിലും വെളിയങ്കോട് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ തീരദേശ മേഖലയിലുമാണ് കടൽക്ഷോഭം രൂക്ഷമായത് കടലാ ക്രമണ ഭീഷണി നേരിടുന്നവർക്കായി ക്യാമ്പുകളും താലൂക്കിൽ ഒരു ക്കി അട്ടപ്പാടി മേഖലയിൽ കഴിഞ്ഞദിവസങ്ങളിൽ ഉണ്ടായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടം ഉണ്ടായി ചെമ്മണ്ണൂർ വണ്ടമല പ്രദേശത്തു ഇരുപതിലധികം വൈദ്യുത പോസ്റ്റുകൾ തകർന്നു

കാലവർഷം ശക്തിപ്പെട്ടാൽ ഒറ്റപ്പെടാവുന്ന ഊരുകളിൽ ഒരു മാസ ത്തേക്കാവശ്യമായ ഭക്ഷ്യ സാധനങ്ങൾ വിതരണം ചെയ്തു ഇടുക്കി ഹൈറേഞ്ചിൽ മഴയും ശക്തമായ കാറ്റും മൂലം വൻതോതിൽ ഏത്തവാഴ കൃഷി നശിച്ചു ഓണക്കാലത്തെ പ്രതീക്ഷിച്ച് വിളവിറക്കിയ വാഴകളാണ് വ്യാപകമായി നശിച്ചത് കോഴിക്കോട് ജില്ലയിലും കനത്ത മഴ തുടരുകയാണ്

അടിയന്തര സാഹചര്യമുണ്ടായാൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കുമെന്ന് റവന്യു വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്തെ തീരമേഖലയിൽ കടലാക്രമണം നേരിടാൻ ജിയോ ബാഗുകൾ അടിയന്തരമായി സ്ഥാപിക്കാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദേശം നൽകി കടലാക്രമണം രൂക്ഷമായ ഒൻപത് ജില്ലകൾക്ക് ഇതിനായി ഇരുപത്തി ഒന്നര കോടി രൂപ അനുവദിച്ചു തിരുവനന്ത പുരം ജില്ലക്ക് മാത്രമായി മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശിൽ ഈ മാസ്ം മൂന്നിന് വ്യോമസേനാ വിമാനം തകർന്ന് ജീവൻ നഷ്ടമായ സൈനികരുടെ കുടുംബാംഗ ങ്ങളുടെ ദുഖത്തിൽ പങ്ക് ചേരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജ യൻ അറിയിച്ചു

രാജ്യസേവനത്തിനിടെ മരിച്ച സൈനികർക്ക് ആദരാ ജ്ഞലി അർപ്പിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു അരുണാചൽ പ്രദേശിലെ പർവ്വത വന മേഖലയിലാണ് വിമാനം തകർന്ന് വീണത് വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചതായി ഇന്നലെ വ്യോമസേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു ൃ ഭീകരസംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടെന്ന വിവ രത്തെ തുടർന്ന് കോയമ്പത്തൂരിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത മുഹമ്മദ് അസ്ഹറുദ്ടീനെ കൊച്ചി എൻ ഐഎ കോടതി റിമാന്റ് ചെയ്തു കേരളത്തിലും തമിഴ്നാട്ടിലും സ്ഫോടനം നടത്താൻ യുവാക്കളെ ആകർഷിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ അസ്ഹറുദ്ദീൻ ഉൾപ്പെടെ ആറു പേർക്കെതിരെ ബുധനാഴ്ച്ചയാണ് എൻഐഎ കേസെടുത്ത ത് പത്തു വർഷത്തിനകം ഇന്ത്യ സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്ന് ഐഎസ്ആർഒ ചെയർമാൻ കെ

ഗഗൻയാൻ പദ്ധതിയുടെ തുടർച്ചയെന്ന നിലയിലാണ് ബഹിരാ കാശ നിലയം യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് പദ്ധതി റിപ്പോർട്ട് വൈകാതെ ഗവൺമെന്റിന് കൈമാറുമെന്ന് അദ്ദേഹം ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

കർണാടകയിൽ കുമാരസ്വാമി മന്ത്രിസഭ ഇന്ന് വികസിപ്പിക്കും വഷളായി വരുന്ന കോൺഗ്രസ് ജനതാദൾ എസ് ബന്ധങ്ങൾ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് മന്ത്രിസഭാ വികസന്മെന്ന് റിപ്പോർട്ടു ണ്ട് മൂന്ന് മന്ത്രിമാരുടെ ഒഴിവുകളിൽ രണ്ട് പേർ ഇന്ന് സ്ഥാനമേൽ ക്കും ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ന്യൂസിലന്റ് മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു നോട്ടിങ്ങ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജ് സ്റ്റേഡിയ ത്തിൽ ഒരു പന്ത് പോലും എറിയാതെയാണ് മത്സരം ഉപേക്ഷിച്ചത് ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കിട്ടു ഇതോടെ ഈ ലോകകപ്പ് ക്രിക്കറ്റിൽ മഴ മൂലം നഷ്ടമായ മത്സരങ്ങൾ നാലായി ഇന്ന് സതാംപ്ടണിൽ വെസ്റ്റിൻഡീസ് ഇംഗ്ലണ്ടിനെ നേരിടും ദ്രാവകരൂപത്തിൽ കടത്താൻ ശ്രമിച്ച ഒന്നരക്കിലോ യോളം സ്വർണ്ണവുമായി രണ്ടുപേരെ പാലക്കാട് എക്സ്സൈസ് സംഘം പിടികൂടി വയനാട് കോഴിക്കോട് സ്വദേശികളായ ജസീർ അജ്നാസ് എന്നിവരാണ് വാളയാറിന് സമീപം പിടിയിലായത്

എസ് ആർ ടി

മലപ്പുറം മോങ്ങംപുല്ലര മൂച്ചിക്കൽ സ്വദേശി കുഞ്ഞാപ്പു എന്ന ഷുഹൈബ് ആണ് വനപാലകരുടെ പിടിയിലായത് കണ്ണൂർ ആറളം ഫാമിൽ കടന്നുകയറിയ കാട്ടാന കൂട്ടത്തെ വന ത്തിലേക്ക് തുരത്തി

മുപ്പത്തഞ്ചോളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് ആനകളെ ഉൾവനത്തിലേക്ക് ഓടിച്ചത് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ ലൈസൻസില്ലാത്ത ആനസഫാരി കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിർത്തിവെയ്ക്കാൻ നോട്ടീസ് നൽകുന്നതിന് ഇടുക്കി ജില്ലാതല നാട്ടാന പരിപാലന സമിതി യോഗം തീരുമാനിച്ചു

ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റ് ധൃതി പിടിച്ച് നടപ്പാ ക്കുകയാണെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴി ക്കോട്ട് കുറ്റപ്പെടുത്തി റിപ്പോർട്ടിൽ സുതാര്യത ഇല്ലെന്നും പൊതു സമൂഹത്തിനോ വിദ്യാഭ്യാസ വിദഗ്ധർക്കോ പഠിക്കാനോ ചർച്ച ചെയ്യാനോ പോലും അവസരം നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറ ഞ്ഞു വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യണം ഈ റിപ്പോർട്ട് കൊണ്ട് എന്ത് ഗുണപരമായ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാ കുന്നതെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണമെന്നും മുല്ലപ്പള്ളി ആവശ്യ പ്പെട്ടു സംസ്ഥാന ഗവൺമെന്റ് മലബാറിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി

ഫിറോസ് കുറ്റപ്പെടുത്തി മലബാറിൽ കൂടു തൽ പ്ലസ് ടു ബാച്ചുകൾ അനുവദിക്കണമെന്ന ആവശൃം ഗവൺമെന്റ തള്ളിയിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി

സുരക്ഷിത രക്തം എല്ലാവർക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം

കോഴിക്കോട്ട് ദിനാ ചരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്യും

തുടർച്ചയായ എട്ടാം തവണയാണ് അവർ ജേതാക്കളാവുന്നത് വെള്ളായണി കാർഷിക കോളജ് രണ്ടാം സ്ഥാന വും പടന്നക്കാട് കാർഷിക കോളജ് മൂന്നാം സ്ഥാനവും നേടി ഒരു മാസം നീണ്ട കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപി ച്ചു

ആലപ്പുഴയിൽ ഇന്നലെ രണ്ട് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരി ച്ചു

അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ഒരാഴ്ച്ചത്തെ പരിപാടികൾക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാകും ആയുഷ് വകുപ്പും ആയുഷ് മിഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടി ജില്ലാ പൊലീസ് മേധാവി എ

ജോർജ്ജ് ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് കട്ടിപ്പാറ ഉരുൾപ്പൊട്ടലിന് ഇന്ന് ഒരു വർഷം തിക യുന്നു